വർഷമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ രാജ്കോട്ടിൽ എയിംസിന് പ്രധാനമന്ത്രിച്ചത്രിക്കല്പിട്ടു

കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള ഏഴാർ വ്ട്ട ചർച്ച അടുത്ത മാസം നാലിന് താങ്ങൂപിലയ്ക്ക് നിയമ പരിരക്ഷ വേണമെന്ന ആ്വശ്യം പരിഗണിക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രി

ശതമാനമായി ഉയർന്നു പ്രതിദിന മരണസംഖ്യയിൽ കുറവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

ഗുജ്യാ്ത്തിലെ രാജ്കോട്ടിലുള്ള എയിംസിന് തറക്കല്ലിട്ടു സംസ്ാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്കോട്ടിലെ പുതിയ ദ്ദേശ്ീയ ആരോഗ്യ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നതിലൂട്ട് പുതുവർഷത്തിന്റെ മുൻഗണന ആരോഗ്യ സംവിധാനുങ്ങളുടെ വികസനമാണെന്ന് അടയാളപ്പെടുത്തുക ്ക്ടൂടിയാണ്

കോവിഡ് പ്രതിരോധ മരുന്ന് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ആറാം വട്ട ചർച്ചയിൽ വായു ഗുണനിലവാരം സംബന്ധിച്ചും വൈദ്യുതി സബ്സിഡിയിലും ധാരണയായതായി കേന്ദ്ര കാർഷിക മന്ത്രി നരേന്ദ്രസിങ് തോമർ വൃക്തമാക്കി താങ്ങുവില തുടരുമെന്നും താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ വേണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ടു വച്ചതായും അദ്ദേഹം പറഞ്ഞു

മൂന്ന് കാർഷിക ബില്ലുകൾ സംബന്ധിച്ചും അടുത്ത വട്ട ചർച്ചയിൽ തീരുമാനിക്കും ഡൽഹിയിലെ അതിശൈത്യത്തിന്റെ പശ്ചാത്തലത്തിൽ സമരത്തിനെത്തിയ വയോജനങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും വീടുകളിലേക്ക് മടക്കി അയയ്ക്കാൻ മന്ത്രി സമരക്കാരോട് അഭ്യർത്ഥിച്ചു

കർഷക സമരം തുടരുന്നത് കേരളത്തെ ബാധിക്കുമെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ വരവ് നിലച്ചാൽ കേരളം പട്ടിണിയിലാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചു കൊണ്ട് പറഞ്ഞു പുതിയ നിയമം കർഷകരിൽ ഉണ്ടാക്കുന്നത് കൂട്ടുത്ത് ആശങ്കയാണ്

നിയമങ്ങൾ റദ്ദാക്കാനുള്ള അടിയ്യന്തിര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹൃം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു

കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളതെന്നും പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ചില പരാമർശങ്ങളെ മാത്രമാണ് താൻ സഭയിൽ എതിർത്തതെന്നും അദ്ദേഹം വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിൽ പൊതു വികാരത്തിനാണ് മുൻതൂക്കമെന്നും ശ്രീ ഒ രാജഗോപാൽ അഭിപ്രായപ്പെട്ടു

ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് മരണവും കുറയുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

മധ്യപ്രദേശിൽ തുടർച്ചയായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തേക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഉയരുന്നു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത്

വിവിധ പദ്ധതികൾ പരിപാടികൾ പരാതികൾ എന്നിവ സംബന്ധിച്ച് ആശയവിനിമയം നടന്നു റെയിൽവേ ഉപരിതല ഗതാഗത മന്ത്രാലയം ഭവന നഗര കാര്യമന്ത്രാലയം എന്നിവയുടെ പദ്ധതികൾ ചർച്ച ചെയ്തു

പദ്ധതികൾ നിശ്ചിതസമയത്ത് തന്നെ പൂർത്തീകരിക്കാനും പരാതികൾ വേഗത്തിൽ പരിഹരിക്കാനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി

ഇതോടെ ടോൾ പ്താസകളിൽ വാഹനം നിർത്തി പണം നൽകേണ്ട ആവശ്യമുണ്ട്ടാകില്ല ഇത് ഇന്ധനവും സമയവും ലാഭിക്കും

കുട്ടികൾക്ക് സ്കൂളിലെത്താൻ രക്ഷിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമാണ്

ഇന്ന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പൊതുപരിപാടികൾ നടത്താൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി എല്ലാ ആഘോഷങ്ങളും രാത്രി പത്ത് മണിക്ക് അവസാനിപ്പിക്കണമെന്നും നിർദേശമുണ്ട് ആഘോഷങ്ങളിൽ മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം എന്നിവ നിർബന്ധമായും പാലിക്കണം നിയന്ത്രണം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാനും നിർദേശമുണ്ട്

പ്രനാജ്ഞ അവസാനിക്കുന്നതുവരെ നഗ്രത്തിൽ വാഹനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണിട്ട് ഏർപ്പെടുത്തുകയും ഫ്ളൈ ഓവറുകൾ അടയ്ക്കുകയും ചെയ്യുമെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണ്ർ അ്റിയിച്ചു

ഇതിന്റെ ഭാഗമാണ് ഒഡീഷയിലെ പാരദ്വീപ് തുറമുഖത്തെ വെസ്റ്റ് ഡോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു

ഈ വിവരങ്ങളിൽ വിശ്ര്കല്നം തുടരുകയാണ്